സൂക്ഷ്മ പരിശോധന ഇന്ന്

നേപ്പാളിൽ മരിച്ച മല്ലയ്കളികളുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം ന് നാട്ടിലെത്തിക്കാൻ നട്പടികൾ പൂരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി വി

ഇംപീച്ച്മെന്റ് വിചാരണ സെനറ്റിൽ ആരംഭിച്ചു

ഇന്ന് തിരശ്ശീല വീഴും

വിവര വിനിമയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി സമയബന്ധിതമായ ഭരണനിർവ്വഹണമാണ് പ്രഗതി

സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവലോകനം ചെയ്യുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാണ് പ്രഗതി കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികൾ യഥാസമയം അവലോകനം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും ആവിഷ്ക്കരിച്ചിട്ടുള്ളതാണ് പ്രഗതി സംവാദ പരിപാടി

വെള്ളിയാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം

ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ് രിവാൾ ന്യൂഡൽഹി സീറ്റിലേക്കാണ് പ്പത്യിക് സമർപ്പിച്ചത് ബിജെപിയിലെ സുനിൽ യാദവ് കോൺഗ്രസ്സ് സ്ഥാന്ദാർത്ഥി റൊമേഷ് സബർവാൾ എന്നിവരാണ് പ്രമുഖ എതിരാളികൾ അതിന്റിടെ ശ്രീ അരവിന്ദ് കേജ്രിവാളിന്റെ പത്രിക സ്വീകരിക്കുന്നതിൽ മനപൂർവ്വമായ താമസം വരുത്തിയെന്ന ആരോപണം ജില്ലാ തെരഞ്ഞെടുപ്പ് കാര്യാലയം നിഷേധിച്ചു ഇതു സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് കാര്യാലയം അറിയിച്ചു സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കുന്നതിൽ പ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അതിനാൽ ഇക്കാര്യത്തിൽ ധൃതിപിടിച്ചുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു

പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് സംശയനിവാരണത്തിനായി മീററ്റിൽ സംഘടിപ്പിച്ചിട്ടുള്ള യോഗത്തെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ് അഭിസംബോധന ചെയ്യും കാൺപൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു പരിപാടിയിൽ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ സംബന്ധിക്കും പൌരത്വ നിയമഭേദഗതി സംബന്ധിച്ച് അറിവ് നൽകുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ബിജെപി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്

പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലിംഗപക്ഷപാതപരമായി പെൺകുട്ടികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം കൂട്ടായ ശ്രമങ്ങളിലൂടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും പദ്ധതി ഉറപ്പാക്കുന്നു

സമൂഹ നന്മയ്ക്കായി പെൺകൂട്ടികൾക്കും ആൺകൂട്ടികൾക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്ന അന്തരം കുറയ്ക്കേണ്ടത് അടിയന്തരാവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു

ഡൽഹി മുംബൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് എ്ണിവയാണ് പുതുതായി പരിശോധന ഏർപ്പെടുത്തിയ മറ്റ് വിമാനത്താവളങ്ങൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റേതാണ് നടപടി

രാജ്യത്തെ എല്ലാ വിമാനസർവ്വീസുകൾക്കും വിമാനത്താവളങ്ങൾക്കും ഇത് സംബന്ധിച്ച അടിയന്തര നിർദ്ദേശം കൈമാറി

പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വേഗത്തിൽ വിട്ടുകിട്ടാൻ നേപ്പാൾ അധികൃതരുമായി വിദേശകാരൃ മന്ത്രാലയം ആശയവിനിമയം നടത്തിവരികയാണ് മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് സൌകര്യം ഏർപ്പെടുത്താനും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫോൺ വിളിച്ചിരുന്നതായി വി മുരളീധരൻ പറഞ്ഞു

പുതിയ തെളിവുകളോ മതിയായ സാക്ഷികളോ ഇല്ലാതെയാണ് വിചാരണ നടത്തുന്നതെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ആരോപിച്ചു അധികാര ദുർവിനിയോഗം ആരോപിച്ച് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം ട്രംപിന്റെ അടുത്ത അനുയായി മിച്ച് മക്കൊണെൽ ശക്തമായി എതിർത്തു തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാകണം വിചാരണ നടപടികളെന്ന അടിസ്ഥാന തത്വം മക്കൊണെൽ ചൂണ്ടിക്കാട്ടി അതുകൊണ്ടു തന്നെ പ്രൊസിക്യൂട്ടർമാരുടെ വാദഗതികൾ നിലനിൽക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇതേ തുടർന്നാണ് സെനറ്റിലും കഴിഞ്ഞയാഴ്ച്ച ഈ്പീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചത്

ഇന്ത്യാ നൈജീരിയി ബന്ധത്തിന്റെ ഉത്തമോദാഹരണമാണ് മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര കൺവൻഷൻ സെന്റർ എന്ന് ഡോ

ലോക നിലവാരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് വേദിയാകാനുള്ള സൌകര്യങ്ങളും കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്

ആന്ധ്രാപ്രദേശിൽ നെല്ലൂരിലെ ശ്രീ പോറ്റി ശ്രീ രാമലു കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ശിൽപ്പശാലയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി തെലുങ്കുഭാഷയുടെയും ഭാഷാപഠനകേന്ദ്രമായ ശ്രീ പോറ്റി ശ്രീ രാമലു കേന്ദ്രത്തിന്റെയും വികസനത്തിനായി രൂപരേഖ തയ്യാറാക്കാൻ ഭാഷാ പണ്ഡിതരോട് ശ്രീ വെങ്കയ്യനായിഡു അഭ്യർത്ഥിച്ചു ഓരോ ഭാഷയും ചരിത്രം സംസ്ക്കാരം നാഗരിക മൂല്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന താണെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി

കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്

ഇന്നലെ ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ ജില്ലയിലെ ശ്രീ പോറ്റി ശ്രീ രാമുലു വിദ്യാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ കിടപിടിക്കത്തക്ക വിധം രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ കേന്ദ്രഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ

എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സമൂഹത്തിൽ ക്രിയാത്മക സ്ക്രൂഭാവനകൾ നൽകാൻ വിദ്യാർത്ഥികൾ മുന്നോട്ടുവരണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു അടിസ്ഥാനപരവും ജനോപകാരപ്രദവുമായ ശാസ്ത്രഗവേഷണങ്ങളിൽ ഏർപ്പെടാൻ സർവകലാശാലാ ഭരണകൂടത്തോടും വിദ്യാർത്ഥികളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ബോക്സിംഗ് ഫുട്ബോൾ ടെന്നീസ് എന്നീ ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും നീന്തൽ ഭാരോദഹനം എന്നിവയിലെ ഫൈനലുകളും ഇന്നാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കമ്പനിയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് നടപടിയെന്ന് ആർ

ഐ വൃത്തങ്ങൾ അറിയിച്ചു